കൂടുതൽ വിവരങ്ങളുമാട്ട്യി സോഫിയ ഡാനിയേൽ വോയ്സ് കോലാലംപൂർ വിമാനത്താവളത്തിൽ ഇന്ത്യൻ യാത്രക്കാരും വിദ്യാർത്ഥികളും അഭിമുഖീകരിക്കുന്ന ലഘൂകരിക്കുന്നതിനുവേിയാണ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയതെന്ന് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ട്വിറ്ററിൽ വ്യക്തമാക്കി മോശം സാഹചര്യം മനസിലാക്കി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും എയർലൈൻസുമായി ഉടൻ ബന്ധപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

അഫ്ഗാനിസ്ഥാൻ ഫിലിപ്പെൻസ് മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും വിലക്ക് ബാധകമാണ്

രാജ്യത്ത് ഇതുവരെ മൂന്ന് പേർ കൊറോണ മൂലം മരണമടഞ്ഞു

സി

ദീർഘദൂര ട്രെയിക്കൂക്ളും ഇതിൽ ഉൾപ്പെടും പനിയോ ചുമയോ മൂക്കൊലിപ്പോട് ശ്രീാസതടസ്സങ്ങളോ ഉള്ള ജീവനക്കാരെ കാറ്ററിംഗ് ജോലികൾക്ക് നിയോഗിക്കരുതെന്ന് കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർക്ക് റെയിൽവെ നിർദ്ദേശം നൽകിയിട്ടു് സ്റ്റേഷനുകളിൽ അനാവശൃ തിരക്ക് ഒഴിവാക്കാനായി സെൻട്രൽ റെയിൽവേയും പശ്ചിമ റെയിൽവേയും ഫ്ളാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്

മുൻകരുതലുകൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ലഫ്റ്റനന്റ് ഗവർണർക്ക് വേണ്ടി ബഷീർ അഹമ്മദ് ഖാനാണ് ഇത് സംബന്ധിച്ചു ഉത്തരവിറക്കിയത് ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ താഴേത്തട്ടിലേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

അടുത്തിടപഴകുന്നത് കൊറോണ വ്യാപനത്തിന് ഇടയാക്കുമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം

ലോക്സഭയിൽ ഇന്ന് ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം സ്വയം വിരമിക്കൽ തെരഞ്ഞെടുത്ത ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി പ്രകാരം നൽകും കരാർ ജീവനക്കാർക്ക് വേതനം ലഭിക്കുന്നതിനായി കരാറുകാർക്കുള്ള കുടിശ്ശികയും തീർപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ജമ്മു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൈനയുൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ല

ഇ

ടി എമ്മുകളിലൂടെയും സാമ്പത്തിക ഇടപാട് നടത്താൻ കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു അനുവദിച്ച മൊറട്ടോറിയം പരിധിക്കുള്ളിൽ ഇടപാടുകൾ സ്കൂൾമ്മാ്കുമെന്നും സി ഇ

ബി ഐ

ബംഗ്ലാദേശിൽ ഷേഖ് മുജീബുർ റഹ്മാന്റെ ജന്മ ശതാബ്ദി ആഘോഷങ്ങളെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

വോയിസ് ബംഗ്ലാദേശ് ഇന്തൃയുടെ വൃാപാര പങ്കാളി മാത്രമല്ല വികസന പങ്കാളി കൂടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കര സമുദ്ര അതിർത്തികൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സങ്കീർണ്ണ പ്രശ്നങ്ങൾ സൌഹാർദ്ദത്തോടെ പരിഹരിക്കാനുള്ള ശേഷിയുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് വീടുകളിലും ഫാക്ടറികളിലും എത്തുന്നു

ബംഗബന്ധു ബംഗ്ലാദേശിനെ ഏറ്റവും അനുഗുണവും വളർച്ചയുള്ളതുമായ രാജ്യമാക്കി മാറ്റിയെന്നും ശ്രീ

ബംഗബന്ധുവിൽ നിന്നും ഊർജ്ജമുൾക്കൊണ്ട് ഷേഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് മുന്നോട്ടു നീങ്ങുമെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എൽ എ മാർ താമസിക്കുന്ന കർണാടക്കയിലെ റിസോർട്ടിന് മുന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സാമാജികരെ സന്ദർശിക്കാൻ പോലീസ് തന്നെ അനുവദിക്കുന്നില്ലെന്നും എം

മാരെ ബി ജെ

ഇതിൽ പ്രതിഷേധിച്ച് താൻ നിരാഹാര സത്യാഗ്രഹം നടത്തുമെന്നും ശ്രീ

വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് അഭ്യർത്ഥിക്കാനായാണ് താൻ എത്തിയതെന്ന് അദ്ദേഹം വൃക്തമാക്കി തുടർന്ന് ദിഗ്വിജയ് സിംഗിനെയും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയും പൊലീസ് കരുതൽ തടങ്കലിൽ വച്ചു

പുതുക്കിയ തീയതി അനുസിര്ലിച്ച് യു എസ് ഓപ്പണിന് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഫ്രഞ്ച് ഔപ്പൺ മത്സരങ്ങൾ നടക്കുക

കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ വിപണിയിൽ വ്യാജ ഉൽപന്നങ്ങൾ വിൽക്കുകയും യഥാർത്ഥ സാനിറ്റൈസറുകൾക്ക് ക്ഷാമം നേരിടുകയും ചെയ്യുന്ന സാഹചരൃത്തിലാണ് പുതിയവ വികസിപ്പിച്ചത് ലോകാരോഗൃ സംഘടനയുടെ മാർഗ്ഗ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊാണ് ഇതെന്ന് ഐ

രാസപദാർത്ഥങ്ങളായ പാരബെൻസ് ട്രൈക്ലോസാൻ കൃത്രിമ സുഗന്ധ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു